ത ഇടുക്കി രാജമല ദുരന്തത്തിൽപെട്ടവർക്കായി തിരച്ചിൽ ഇന്നും തുടരും

വാർത്തകൾ വിശദമായി കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുന്ന തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ പൊലീസ് നടപടി കൂടുതൽ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കൊല്ലം റൂറലിൽ വിജയകരമായി നടപ്പിലാക്കിയ മാർക്കറ്റ് കമ്മിറ്റി മാർക്കറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സംവിധാനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും തൃശൂർ സിറ്റിയിലെ മാതൃകയിൽ മാർക്കറ്റ് മാനേജ്മെന്റ് സംവിധാനം സംസ്ഥാനത്തെ എല്ലാ വലിയ മാർക്കറ്റുകളിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് ചരക്കുമായി എത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് മാത്രമായി സുരക്ഷിതവും അണുവിമുക്തവുമായ താമസസൌകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കൊല്ലം സിറ്റി മാതൃകയിൽ സംസ്ഥാനത്തെ എല്ലാ കണ്ടെയ്ൻമെൻറ് സോണുകളിലും ക്ലോസ്ഡ് ഗ്രൂപ്പുകൾക്ക് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് ബാധിച്ചവരുടേയും രോഗമുക്തി നേടിയവരുടേയും എണ്ണം വർധിച്ചു

സമ്പർക്കം വഴിയും രോഗബാധ വർധിക്കുകയാണ്

രേര സംസ്ഥാനത്ത് ഓൺലൈൻ പഠനരീതി തുടരേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമൂഹിക അകലം പാലിച്ച് സാധാരണ രീതിയിൽ ക്ലാസുകൾ ഉടനെ തുടങ്ങാവുന്ന സാഹചര്യം സംജാതമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസ് ആരംഭിക്കാമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ടെങ്കിലും സുരക്ഷയ്ക്കാണ് ഗവൺമെന്റ് പ്രഥമ പരിഗണന നൽകുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും കോളജുകളിലും കഴിഞ്ഞ സെമസ്റ്ററുകളുടെ അവസാന ഭാഗങ്ങൾ ഓൺലൈൻ വഴിയാണ് പൂർത്തിയാക്കിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുഭ കോഴിക്കോട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇളവനുവദിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കുമെന്ന് മന്ത്രി എ

കണ്ടെയിൻമെന്റ് സോൺ പട്ടികയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ശക്തിപ്പെടുന്നുണ്ടെന്നും ഇങ്ങനെ ഇളവ് അനുവദിക്കേണ്ടിവന്നാൽ രോഗവ്യാപനം ശക്തമാവാൻ ഇടവരുമെന്നും മന്ത്രി പറഞ്ഞു രുമ പട്ടാമ്പിയിലെ സോണുകളായി പ്രഖ്യാപിച്ചത് ശാസ്ത്രീയ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ക്ലസ്റ്റർ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും മന്ത്രി എ

ജില്ലാ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി

രുഭ എറണാകുളം ജില്ലയിലെ പ്രധാന ക്ലസ്റ്ററായ ആലുവയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതായി ജില്ലാ കലക്ടർ എസ്

ഇടവേളക്ക് ശേഷം ചെല്ലാനം മേഖലയിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

രുമ ഗൺമാന് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് മലപ്പുറം ജില്ലാ പൊലീസ് മേധാവി യു അബ്ദുൽ കരീം ക്വാറന്റയിനിൽ പ്രവേശിച്ചു രുമ കണ്ണൂർ ജില്ലയിലെ കണ്ടെയിൻമെന്റ് സോണുകളിലെ റേഷൻ കടകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് രണ്ട് വരെയാണ് കടകൾ പ്രവർത്തിക്കുക രുമ കേന്ദ്രം പുറപ്പെടുവിച്ച പരിസ്ഥിതി ആഘാത വിജ്ഞാപനത്തിന്റെ കരട് ദൂര വ്യാപകവും വിപരീതവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു അതിലെ പല നിർദേശങ്ങളോടും സംസ്ഥാനത്തിന് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുര ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടുതൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താവൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അഞ്ച് ഹെക്ടറിനും നൂറു ഹെക്ടറിനും ഇടയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ പരിസ്ഥിതി ക്ലിയറൻസ് വേണമെന്ന വ്യവസ്ഥയിൽ അഞ്ച് ഹെക്ടറെന്നത് രണ്ട് ഹെക്ടറാക്കി ഭേദഗതി വേണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ചെറുകിട പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് വിശദമായ പരിശോധന നടത്തുന്ന ജില്ലാ പാരിസ്ഥിതിക ആഘാത നിർണ്ണയ സമിതികൾ നിലനിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര പരിസ്ഥിതി ആഘാത പഠന നിയമഭേദഗതിയുടെ കരട് വിജ്ഞാപനം അടിയന്തരമായി പിൻവലിച്ച് കൂടുതൽ ശക്തമായ പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പാക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു

നാളെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയെ അത് നേരിട്ട് ബാധിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോട്ടയം വൈക്കം താലൂക്കുകളിലെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി

ഷോളയൂരിലെ ചില പ്രദേശങ്ങളിലൊഴികെ എല്ലായിടത്തും ഇന്ന് വൈദ്യുതി എത്തുമെന്ന് കെ

ടി ലൈനുകളുടെ പണി പൂർത്തിയാകുന്നതോടെ അട്ടപ്പാടി മേഖലയിൽ പൂർണമായും വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നും അധികൃതർ പറഞ്ഞു

വി വൈദ്യുതി ടവർ പൂർണ്ണമായും തകർന്ന് അട്ടപ്പാടി മേഖല ഇരുട്ടിലായത്

ഈ മാസം മാത്രം മൂന്നു കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായത്

രുമ കാലവർഷത്തിന് നേരിയ ശമനമുണ്ടായതോടെ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പുകളുടെ എണ്ണം കുറഞ്ഞു

ചാലക്കുടി പുഴയിൽ ജലനിരപ്പുയരുന്നതിനാൽ പുഴയോര വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു

ഉപസമിതി അംഗങ്ങൾ ഓൺലൈൻ വഴി ഇന്ന് യോഗം ചേരും ദുദ സംസ്ഥാനത്ത് തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിന് വോട്ടർപട്ടികയിൽ ഇന്നുമുതൽ പേര് ചേർക്കാം രണ്ടാംഘട്ട പുതുക്കലിന് കരട് വോട്ടർപട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

കമ്മീഷൻ വെബ്സൈറ്റിൽ ഓൺലൈനായാണ് പേര് ചേർക്കാൻ അപേക്ഷ നൽകേണ്ടത്

രേര സംസ്ഥാനത്ത് മത്സ്യബന്ധനം ഇന്ന് പുനഃരാരംഭിക്കും

രജിസ്ട്രേഷൻ നമ്പറുകൾ ഒറ്റസംഖ്യയിൽ അവസാനിക്കുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഇരട്ടസംഖ്യയിൽ അവസാനിക്കുന്നവയ്ക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലുമാണ് മത്സ്യബന്ധനത്തിന് അനുമതി